പാകിസ്ഥാന്റെ വിവേചന് നിലപാടുകൾക്കെതിരെ യു

ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തിൽ സിന്ധ് ബലൂചിസ്ഥാൻ പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ ജനങ്ങൾ അണിനിരന്നു

പ്രവണതകളെക്കുറിച്ചുള്ള രണ്ട് ദിവസത്തെ രാജ്യാന്തര സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും

കൊറിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ പി കശ്യപ് സെമിയിൽ കടന്നു

ഭീകരത ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും എല്ലാ രാഷ്ട്രങ്ങളും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണെന്നും ശ്രീ

എല്ലാ രീതിയിലുമുള്ള ഭീകരത്തെയും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ഭീകരതയെ നേരിടുന്നതിലെ ഭിന്നസ്വരം ഈ ലക്ഷ്യത്തിന് ഹാനികരമാണ് ശാന്തിയും സമാധാനവുമാണ് കാലഘട്ടത്തിന്റെ ആവശ്യം എല്ലാ ഭിന്നതകളും മറന്ന് ലോകം ഒന്നിക്കണമെന്ന സ്ട്രാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗത്തിലെ ഉദ്ബോധനം പ്രധാർന്റുമന്ത്രി അനുസ്മരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യൂര്യഷ്ട്രടത്തിന് ഇപ്പോൾ നൽകാനുള്ളതും അതേ സന്ദേശമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

എൻ സമാധാന ദൌത്യത്തിൽ നിര്മ്പ്രധീ ഇന്ത്യക്കാർ ജീവത്യാഗം നടത്തിയിട്ടുണ്ട്

നല്ല നാളേക്ക് വ്യേണ്ടീ ഇന്ത്യാ ഗവൺമെന്റ് ആവിഷ്ക്കരിച്ച നിരവധി വികസന ക്ഷേമ പദ്ധതിക്ക് ലോകത്തിന് പുത്തൻ പ്രതീക്ഷകളാണ് നൽകിയിട്ടുള്ളത് ഇന്ത്യയ്ക്ക്പ്പോലെ വികസനത്തിലേക്ക് കുതിക്കുന്ന രാജ്യങ്ങൾക്ക് അത് ഗുണക്ക്മാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

വിജയകരമായി നടപ്പാക്കിയ ഈ പദ്ധതി ലോകത്തിന് വലിയ പ്രചോദനമാണ് നൽകിയിട്ടുള്ളത് എല്ലാ പേർക്കും പാർപ്പിടം എന്ന ലക്ഷ്യത്തിനായി രണ്ടു കോടി വീടുകളാണ് നിർമ്മിക്കുന്നത്

നരേന്ദ്രമോദി പറഞ്ഞു

പങ്കാളിത്ത വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യയും ഭൂട്ടാനും കൈവരിച്ച പുരോഗതി പ്രധാനമന്ത്രിമാർ അവലോകനം ചെയ്തു

കടുത്ത ദുരിതത്തിൽ കഴിയുന്ന തങ്ങളിൽ ചിലരെ കാണാതാട്ടിട്ട്ക്യോ ചിലർ ജയിലിലടയ്ക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്നും പ്രതിഷ്ട്രേയ്ക്കാർ അറിയിച്ചു

വ്യത്യസ്തവും വിശ്വസനീയവുമായ വാർത്തകൾ ഓൺലൈനിൽ പ്രചരിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുത്ത റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡർ എന്ന സ്വതന്ത്ര പത്രപ്രവർത്തനം നടത്തുന്നതിനുള്ള സംഘടനയ്ക്ക് തുടക്കമിട്ട ദക്ഷിണാഫ്രിക്കയും കാനഡയും ഇതിൽ ഉൾപ്പെടുന്നു

ഡിഫൻസ് കോറിലെ അംഗങ്ങൾക്ക് രാഷ്ട്രപതിയുടെ പുരസ്കാരം ശ്രീ രാംനാഥ് കോവിന്ദ് സമ്മാനിക്കും

മൂന്നാമത് റൂറൽ ഇന്നവേറ്റേഴ്സ് സ്റ്റാർട്ടപ് കോൺക്ലേവ് ഹൈദരാബാദിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സച്ഛ ഭാരത് അഭിയ്ാൻ വൻവിജയം നേടിയതായി ശ്രീ ഷെഖാവത്ത് പറഞ്ഞു

ഇത് സംസ്ഥാനത്തെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്ന് കോൺഫറൻസ് സംസ്ഥാന പ്രസിഡന്റ് അനിൽ ശർമ പറഞ്ഞു

നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും

മലയാള പരിഭാഷ കേരള നിലയങ്ങളിൽ രാത്രി എട്ടിന് കേൾക്കാം

ജെ പി നിലനിർത്തി

പി സ്ഥാനാർത്ഥി യുവരാജ്സിംഗ് തോൽപിച്ചത്

ജെ

ജെ

കേരളത്തിലെ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാണി സി

മേക്ക് ഇൻ ഇന്ത്യ വിഭാഗത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലായിരുന്നു പ്രദർശനം

ജെ

നടപ്പാക്കുന്ന ജനജാഗരൻ അഭിയാന്റെ ദേശിയ ഐക്യ കാമ്പയിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കോൺഗ്രസ് ഭരണം കൊണ്ട് മാറ്റാൻ കഴിയാതിരുന്ന പലതും ബി ജെ

കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയതോടെ മാറ്റാൻ കഴിഞ്ഞുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

കശ്യപ് ഇന്ന് മത്സരിക്കും

കാർട്ടറിൽ ഡെൻമാർക്കിന്റെ ജാൻ ഒ ജോർജൻ സെന്നിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപിച്ചാണ് കശ്യപ് സെമിയിൽ കടന്നത്

ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ ഏകപക്ഷീയമായ നാലു ഗോളുകൾക്ക് മാലദ്വീപിനെ തോൽപിച്ചു

മറ്റൊരു സെമിയിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ നാലു ഗോളുകൾക്ക് തോൽപിച്ചാണ് ബംഗ്ലാദേശ് ഫൈനലിന് യോഗ്യത നേടിയത്

സേവനദാതാക്കൾക്ക് കുടിശ്ശിക ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം